തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എം

കുറവാണെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒ

ബി

അന്വേഷിക്കുമെന്ന് ഉത്തർപ്രദേശ് ഗവൺമെന്റ്

സമ്മേളനം സംഘടിപ്പിക്കുന്നു

പ്രസിഡന്റുമായിരുന്ന എം കരുണാനിധിയുടെ ഭൌതികശരീരം ചെന്നൈയിലെ രാജാജി ഹാളിൽ ഇന്ന് പൊതുജനങ്ങൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ദർശനത്തിന് വയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ത്യാഞ്ജലികൾ അർപ്പിക്കുവാനായി ഇന്ന് രാവിലെ ചെന്നൈയിലെത്തും ഇന്നലെ വൈകുന്നേരമായിരുന്നു ചെന്നൈയിലെ ആശുപത്രിയിൽ കരുണാനിധിയുടെ അന്ത്യം

കരുണാനിധിയോടുള്ള ആദരസൂചകമായി തമിഴ്നാട് ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗവൺമെന്റ് ഔഫീസുകൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം കരുണാനിധിയുടെ ഭൌതീകശരീരം ചെന്നൈ മറീന ബീച്ചിൽ സംസ്ക്കരിക്കണമെന്ന ഡി എം ഒക് യുടെ ഹർജി പരിഗണിച്ച ഹൈക്കോടതി ഇന്ന് രാവിലെ ്രിട്ട് മണിക്ക് വീണ്ടും വാദം കേൾക്കും ആക്റ്റിങ് ചീഫ് ജസ്റ്റിസ് എച്ച്

രമേഷും ജസ്റ്റിസ് എസ്

മറീന ബീച്ചിൽ ശവസംസ്ക്കാരം നടത്തുന്നതിന് നിയമപരമായ തടസ്സങ്ങൾ നിലനിൽക്കുന്നതായി ഭരണകക്ഷിയായ എ ഐ എ ഡി എം കെ ഗവൺമെന്റ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു നിയമതടസ്സങ്ങൾ നിലനിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കരുണാനിധിയുടെ ശവസംസ്ക്കാരത്തിനായി രണ്ടേക്കർ ഭൂമി മറ്റൊരിടത്ത് അനുവദിച്ചതായി ചീഫ് സെക്രട്ടറി വിജ്ഞാപനം ഇറക്കിയിരുന്നു ഈ സ്ഥലത്താണ് തമിഴ്നാട്ടിലെ മുൻമുഖ്യമന്ത്രിമാരായ രാജാജിയെയും കാമരാജിനെയും സംസ്ക്കരിച്ചിരുന്നത്

കരുണാനിധിയുടെ സംസ്കാരത്തെ ചൊല്ലിയുള്ള ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് രാവിലെ എട്ടിന് വീണ്ടും വാദം കേൾക്കും കരുണാനിധിയുടെ സംസ്കാരത്തിനു മറീനാ ബീച്ചിൽ സംസ്ഥാന ഗവൺമെന്റ് സ്ഥലം അനുവദിക്കാതിരുന്നതോടെയാണ് ഡി എം

ഇന്നലെ രാത്രി പത്തരയ്ക്ക് ആരംഭിച്ചു വാദം രണ്ടുമണിക്കൂർ തുടർന്നു തുടർന്ന് ഹർജിയിൽ മറുപടി പറയാൻ ശ്രീഖൺമെന്റ് കൂടുതൽ സമയം തേടിയതോടെ ഹൈക്കോടതി വാദ്ദര് ഇന്ന്ത്തേക്ക് മാറ്റുകയായിരുന്നു

രമ്ഷോണ് ഹർജി പരിഗണിക്കുന്നത്

നാഗ്പൂരിൽ ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

വി എം

വി പാറ്റ് സംവിധാനത്തിലെ ചില അപാകതകൾ കൊണ്ട് സംഭവിച്ചതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഐ ഐ ടി ബോംബയിലെ വിദഗ്ദ്ധ സംഘം ഈ പിഴവുകൾ പരിശോധിച്ചതായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ സംവിധാനം സുഗമമായി പ്രവർത്തിച്ചതായും ശ്രീ റാവത്ത് വ്യക്തമാക്കി

ഭാവി അധിഷ്ഠിധവും നവീനവുമായ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മുടെ സർവ്വകലാശാലകൾ മുന്നോട്ടുവരണമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു ന്യുഡൽഹിയിൽ ഇന്നലെ ജിൻഡാൽ ഗ്ലോബൽ യുണിവേഴ്സിറ്റിയുടെ ബിരുദധാനചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി ലോകത്തെ മറ്റ് സർവ്വകലാൽാ്ലകളുടെ നല്ല ആശയങ്ങൾ നമ്മുടെ സർവ്വകലാശാലകളും പ്രാവർത്തികമാക്കണമെന്ന് ശ്രീ ്വെങ്കിയ്യനായിഡു ആവശ്യപ്പെട്ടു ഇന്ത്യൻ ഭാഷകളെ പരാമർശിച്ച് രാജ്യത്തെ അടിസ്ഥാന വിദ്യാഭ്യാസ പുരോഗതിക്ക് ഇവയെ ക്രിയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണമെന്നും ഉപരാഷ്ട്രപതി എടുത്തു പ്റഞ്ഞു

മലേഷ്യയിലേക്ക് ബിസിനസ് ആവശ്യത്തിനായി യാത്ര ചെയ്യുമ്പോഴാണ് ആർ

വൈദ്യ കെ

കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം ഇരുവരേയും രക്ഷിക്കാനായി പ്രവർത്തിച്ച ഇന്ത്യൻ ഹൈക്കമ്മീഷണർ മൃദുൽ കുമാർ മറ്റ് ഉദ്യോഗസ്ഥർ മലേഷ്യൻ പോലീസ് സേന എന്നിവരെ അഭിനന്ദിക്കുന്നതായി ശ്രീമതി സുഷമ സ്വരാജ് ട്വീറ്റ് ചെയ്തു

മഹാറിഷി വാമദേവ കപ്പലിലെ ജീവനക്കാരിൽ രണ്ടുപേരെ തിരിച്ചയച്ചതായും അവർ വൃക്തമാക്കി കപ്പലിലെ എ

പ്രവർത്തന രഹിതമായതിനാലും വെളിച്ചമില്ലാത്തതിനാലും ഇരുവർക്കും താപാഘാതം ഏറ്റിരുന്നു

ഇവർക്കു പകരമായി ദുബായ് കോൺസലേറ്റ് ജനറൽ പുതിയ സംഘത്തിനെ നിയോഗിക്കുമെന്നും ശ്രീമതി സ്വരാജ് വ്യക്തമാക്കി

കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

നീലക്കുറിഞ്ഞികളുടെ പൂക്കാല്ം ഐ

എൽ മാതൃകയിലുള്ള വള്ളംകളി മൽസരം കൊച്ചി ഫിനാലെ തുടങ്ങിയവ ഇപ്പോൾ തന്നെ സഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട് യൂറോപ്പ് യു കെ ഫ്രാൻസ് ജർമ്മനി റഷ്യ ഗൾഫ് നാടുകൾ എന്നിവിടങ്ങളിൽ നിന്നാണ് സംസ്ഥാനത്തേക്ക് പ്രധാനമായും വിനോദസഞ്ചാരികൾ എത്തുന്നത് വിദേശികൾക്ക് ഇന്ത്യയിലെത്താൻ വിസ നിയമങ്ങൾ ഉദാരമാക്കിയത് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ സഹായകമായി ഓൺലൈനായി വിസ എടുക്കാമെന്നതാണ് ഇപ്പോഴത്തെ അനുകൂല ഘടകങ്ങളിലൊന്ന്

പുതിയ മാർക്കറ്റിങ് തന്ത്രങ്ങളിലൂടെ കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനാണ് സംസ്ഥാന വിനോദസഞ്ചാരവകുപ്പ് പദ്ധതികൾ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ കെ

പിന്നാക്കവിഭാഗങ്ങളിലെ യുവാക്കൾക്ക് തൊഴിൽ സംരംഭങ്ങൾ കണ്ടെത്തുന്നതിനുവേണ്ടിയാണ് തുക അനുവദിച്ചിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു ദേശീയ പിന്നാക്ക സമിതിയുടെ മൂന്നാമത് കൺവെൻഷനെ മുംബൈയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം തൊഴിൽരംഗത്ത് പിന്നാക്ക വിഭാഗങ്ങൾക്കൂള്ള കാട്ട നിലനിർത്തുന്ന കാര്യത്തിൽ തന്റെ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു മഹാരാഷ്ട്രയിലെ പതിന്റൊന്ന് ജില്ലകളിൽ പിന്നാക്കവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി ഹോസ്റ്റലുകൾ നിർമ്മിക്കുമെന്നും അദ്ദേഹം വൃക്തമാക്കി

ഗുവഹട്ടിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാലു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇപ്പോൾത്തന്നെ വെളിയിട വിസർജന വിമുക്തമായിട്ടുണ്ട് ശേഷിക്കുന്നവയും ഉടനെ ഇതേ പാതയിലെത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി രാജ്യത്ത് എട്ട് കോടി ശുചിമുറികളാണ് നിർമ്മിച്ചിട്ടുള്ളത് വെളിയിട വിസർജന വിമുക്ത ഭാരതം എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യം വൈകാതെ സാക്ഷാൽക്കരിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു അസ്സം മുഖ്യമന്ത്രി സർബാനന്ദ് സൊനോവാളുമായും മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി

ബി

ലക്നൌവിൽ ഇന്നലെ വൈകിട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ സുതാര്യമായ അന്ദ്ധേഷ്ടണ്ം ഉറപ്പാക്കാൻ കേസ് സി ബി ഐ യെക്കൊണ്ട് അന്ദ്യേഷിപ്പിക്കാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു തെളിവുകൾ നശിപ്പിക്കപ്പെടാതിരിക്കാൻ ഒരു പ്രത്യേക അന്വേഷണസംഘം രൂപീക്രിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു

അഭയ കേന്ദ്രത്തിൽ നിന്ന് മോചിപ്പിച്ച പെൺകുട്ടികളെ വാരണാസിയിലെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു

ലോക് കല്യാൺമിത്ര എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവർ സംസ്ഥാനത്ത് ഇനി നടപ്പിലാക്കേണ്ട ക്ഷേമപ്രവൃത്തികളെ കുറിച്ചും ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകും ലക്നൌവിൽ ഇന്നലെ മുഖ്യമന്ത്രി കോശി ആദിത്യനാഥിന്റെ അദ്ധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം

ഇന്ത്യയുടെ സുസ്ഥിര വികസനത്തിന് വാണിജ്യ മേഖലയുടെ പ്രാധാന്യം മനസ്സിലാക്കി് നീതി ആയോഗ് കോൺഫിഡറേഷൻ ഓഫ് ഇന്ത്യ്ൻ ഇൻഡസ്ട്രീസ് എന്നിവർ സംയുക്തമായിട്ടാണ് യോഗ്ലാ് സംഘടിപ്പിച്ചിരിക്കുന്നത്

ഈ മേഖലകളെ ഉൾപ്പെടുത്തി മൂന്ന് സാങ്കേതിക വിദ്യാ സെഷനുകളും നടക്കും കേന്ദ്ര ഗവൺമെന്റ് ഉന്നത ജീവനക്കാർ സംസ്ഥാന ഗവൺമെന്റ ഉദ്യോഗസ്ഥർ വ്യവസായിക മേഖലകളിൽ നിന്നുള്ള സി ഇ ഒ മാർ മേഖലയിലെ വിദഗ്ദ്ധർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും

ഇറാന് അമേരിക്ക ഉപ്പരോധം ഏർപ്പെടുത്തിയിട്ടുള്ളതിനാൽ ഇറാനുമായി വാണിജ്യബ്ന്ധു് പുലർത്തുന്ന രാഷ്ട്രങ്ങൾക്കും അത് ബാധകമായിരിക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്